കാറ്റിനും മഴയ്ക്കും സാധൃത കടലിൽ പോകുന്നതിന് വിലക്ക് ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി

ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെട്ടുപ്പിൽ പ്രചാരണം ഊർജ്ജിതം ന് കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിലുള്ളവർക്കുമുള്ള പ്രത്യേക ബാലറ്റ് വിതരണും തുടങ്ങി

നോട്ടീസ് ഈ മാസം നാലിന് നിയമസഭ എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കും സ്പീക്കറുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ധനമന്ത്രി

റൺസ് ജയം

എസ് എൽ ൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂരിനെ നേരിടും

തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുളള ജില്ലകളിൽ ഇന്ന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തിരുവന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്

നിലവിൽ മീൻപിടുത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു

രണ്ട് ടീമുകൾ കൂടി സംസ്ഥാനത്തെത്തും

തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു

നവ്ജ്യോത് ഖോസ റവന്യൂ പൊലീസ് തദ്ദേശ സ്വയംഭരണ അധികൃതർക്കു നിർദേശം നൽകി

കൂടുതൽ വിവരങ്ങളുമായി ബ്ലിന്ദു ്വിനോദ്

ഇക്കാരൃത്തിൽ തുടർനടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു

സുരേന്ദ്രൻ ഒരു മന്ത്രിയെ എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിൽ വിളിച്ച് വരുത്തുന്ന സാഹചര്യം സംസ്ഥാനത്ത് ആദ്യമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ

തീർത്ഥാടനം ഒഴിവാക്കണം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരളത്തിലെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ പ്രകൃതിക്ഷോഭത്തിന് കാരണമായേക്കാവുന്ന സാഹചര്യത്തിൽ ഭീഷണി ഒഴിയുന്നതുവരെ ശബരിമല തീർത്ഥാടനം മാറ്റിവെക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു കടലിൽ പോകുന്നത് ഇനിക്കൊരുറിയിപ്പുണ്ടാ കുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചു

പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം ്രണ്ടായിരമായും ശനി ഞായർ ദിവസങ്ങളിൽ മൂവായിരവുമായാണ് വർദ്ധിപ്പിച്ചത്

എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് എഫ് സി ജംഷഡ്പൂരുമായി ഏറ്റുമുട്ടും ഗോവയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇടുക്കി ഇൻട്രോ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇടുക്കിയിലെ കൊളുക്കുമലയി ലേക്കുള്ള ട്രെക്കിംഗ് പുനരാരംഭിച്ചു

ഓഹരി ഓഹരി വിപണികളിൽ ഇന്ന് ചാഞ്ചാട്ടം